ആന്ധ്രാപ്രദേശിൽ നിരവധി വികസ്മന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

ഉദ്ഘാടനവും ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവ്വഹിച്ചു

ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂരിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ കരുതൽശേഖരം ഉണ്ട് ആവശ്യകത പരിഗണിച്ച് രാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ പെട്രോളിയം ശുദ്ധീകരണശാലകളും തുടങ്ങിയിട്ടുണ്ട് നിരവധി പേർക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കുമെന്നും ശ്രീ

ചരിത്രമുറങ്ങുന്ന ആന്ധ്രാപ്രദേശിന്റെ മഹദ്വ്യക്തിത്വങ്ങളെ സ്മരിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് ആന്ധ്രാപ്രദേശിനെ കോൺഗ്രസ്സ് മുക്തമാക്കിയ മഹാനേതാവാണ് എൻ

എന്നാൽ ഇന്ന് തെലുങ്കു ദേശത്തെ നയിക്കുന്ന ചന്ദ്രബാബു നായിഡു കോൺഗ്രസ്സുമായി ളകെകോർത്ത് രാമറാവുവിനെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്യസമരചരിത്രത്തിൽ ആന്ധ്രാപ്രദേശ് നിസ്തുലമായ സംഭാവനകൾ നിൽക്കിയിട്ടുണ്ട് നിർദ്ദിഷ്ട അമരാവതി നഗരത്തെ ഇന്ത്യ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അമരാവതി സർവകലാശാല് ഇന്ത്യയുടെ ഓക്സ്ഫോർഡായി മാറുമെന്ന് പറഞ്ഞ പ്രധാനമ്പ്രത്തി സംസ്ഥാനത്തെ പുതിയ വോട്ടർമാർക്ക് ആശ്യസുകളും നേർന്നു

തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന ശ്രീ

ഇതോടൊപ്പം ഒ

തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഇ

ഐ

ട്രിച്ചി ചെന്നൈ വിമാനത്താവളങ്ങളുടെ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട പുതിയ കെട്ടിടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും

സി

ചെന്നൈ തുറമുഖത്തുനിന്നും ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മണാലിയിലുള്ള റിഫൈനറിയിലേയ്ക്ക് അസംസ്കൃത എണ്ണ എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈനും ശ്രീ

കർണാടക ഹൂബ്ലിയിലെ ദർവാദിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ശിലാസ്ഥാപന കർമ്മം പ്രധാനമന്ത്രി മ്പൂർവ്വഹിക്കും

നാദിയ ജില്ലയിൽ മജ്ദിയയിലെ ഫുൽബാരിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തശേഷം മടങ്ങുന്നതിനിടെയാണ് സംഭവം

സത്യജിത്ത് ബിസ്വാസ് നാദിയ ജില്ലയിലെ കൃഷ്ണഗുഞ്ച് നിയോജക മണ്ഡലത്തിലെ എം

സംഭവത്തിൽ പൊലീസ് അന്വേഷണം ആരംഭിച്ചു സത്യജിത് ബിസ്വാസ് കൊല്ലപ്പെട്ട സംഭവത്തെ മുഖ്യമന്ത്രി മമത ബാനർജി അപലപിച്ചു

ബി ഐ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു മേഘാലയിലെ ഷില്ലോങ്ങിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യൽ എട്ട് മണിക്കൂറോളം നീണ്ടു കേസിൽ രാജ്യസഭാ മുൻ എം

യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ കുനാൽഘോഷിനെ ഇന്ന് ചോദൃം ചെയ്യലിന് ഹാജരാകാൻ സി ബി ഐ

മേഖലയിൽ സംയുക്ത തെരച്ചിൽ നടത്തുകയാണ്ട് രാഷ്ട്രീയ റൈഫിൾസ് സ്പെഷൽ ഓപ്പിറേഷൻ ഗ്രൂപ്പ് ജമ്മൂ കാൾമീർ പോലീസ് സി

എഫ് എന്നിവർ അട്ടങ്ങിയ സൈനികർക്ക് നേരെയാണ് തീവ്രവാദികൾ ്വെടിയുതിർത്തത് തുടർന്ന് സൈന്യം നടത്തിയ തിരിച്ചട്ടീയിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്

രാജ്യത്ത് കൂടുതൽ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായും ശ്രീ

ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജ് പദവിയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി ആരോഗ്യ പരിരക്ഷ ഏവർക്കും ലഭ്യമാക്കാൻ കഴിയുമെന്നും ശ്രീ നദ്ദ പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റ് ചർച്ചയ്ക്കായി ക്ഷണിച്ചെങ്കിലും ഗുർജ്ജർ നേതാക്കൾ ക്ഷണം നിരസിച്ചു ഗുർജർ സമുദായം അഞ്ച് ശതമാനം പ്രത്യേക സംവരണം ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം നടത്തുന്നത് പ്രത്യേക പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ഒരു ശതമാനം സംവരണത്തിന് ഇപ്പോൾ ഗുർജാർ സമൂഹത്തിന് അർഹതയുണ്ട്

ബസന്ത് പഞ്ചമിയോടനുബന്ധിച്ച് ഇന്ന് പുലർച്ചെ കുംഭമേളയിൽ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ബസന്ത്പഞ്ചമി ആശംസകൾ നേർന്നു മേളയുടെ ഭാഗമായി നടക്കുന്ന മൂന്നാമത്തെയും അവസാന ത്തെയും രാജകീയ സ്നാനമാണ് ഇന്ന് കുംഭമേളയിൽ നടക്കുക അഗോരികളും സന്യാസികളും രാജകീയ സ്നാനത്തിനായി ഗംഗ യമുന സരസ്വതി സംഗമ ഘട്ടത്തിൽ മുങ്ങിനിവരും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പത്ത് സൈനികർക്ക് പരിക്കേറ്റു മൂന്നു പേർ ഗുരുതരാവസ്ഥയിലാണ്

കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വദേശി ദർശിൻ പ്ദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുദേവ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുകുയാണ് ലക്ഷ്യം

ചെമ്പ്ഴന്തി നാരായണ ഗുരുകുലം അരുവിപ്പുറം ക്ഷേത്രം കൂന്നുംപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ശിവഗിരി മഠം എന്നിവൃയാണ് ്പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്

ആയിരക്കണക്കിന് വിശ്വാസികളാണ് പമ്പ മണൽപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് എത്തി കൊണ്ടിരിക്കുന്നത് അതേസമയം അയിരൂർ ചെറുകോൽപ്പുഴയിൽ ഒരാഴ്ചയായി നടന്നിരുന്ന പ്രശസ്തമായ ഹിന്ദു മത ്പരിഷത്തിന് ഇന്നു സമാപനമാകും മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പരിഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ഭക്തർക്കാവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു സന്നിധാനത്ത് പോലീസ് ആസ്ഥാനം സ്പെഷ്യൽ സെൽ എസ്

വി അജിത്തിന്റേയും പമ്പയിൽ എസ്

മഞ്ജുനാഥിന്റെയും നിലയ്ക്കലിൽ കൊല്ലം സിറ്റി ജില്ലാ പോലീസ് മേധാവി പി

ഉച്ചയ്ക്കുശേഷം മൂന്ന് മണിക്ക് നടക്കുന്ന ഫൈനലിൽ ജാർഖണ്ഡും ഹരിയാനയും ഏറ്റുമുട്ടും

ഉത്തരാഖണ്ഡിൽ ദുരന്തത്തിലകപ്പെട്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ് ഇവർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി